എൽഡിഎഫ് സീറ്റ് വിഭജനം പൂർത്തിയായി യുഡിഎഫും എൻഡിഎയും സ്ഥാനാർത്ഥി നിർണയം ഇന്നും നാളെയുമായി പൂർത്തിയാക്കും

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദേശ പത്രികാ സമർപ്പണം മറ്റന്നാൾ ആരംഭിക്കും എൽഡിഎഫ് സീറ്റ് വിഭജനം പൂർത്തിയായി യുഡിഎഫും എൻഡിഎയും സ്ഥാനാർത്ഥി നിർണയം ഇന്നും നാളെയുമായി പൂർത്തിയാക്കും എൽഡിഎഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിനെ തുടർന്ന് മിക്ക ഘടകകക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സിപിഐഎം സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും

കോവളത്ത് ഡോ

നീലലോഹിതദാസനും തിരവല്ലയിൽ മാത്യു

തോമസും ചിറ്റൂരിൽ കെ കൃഷ്ണൻകുട്ടിയും അങ്കമാലിയിൽ ജോസ് തെറ്റയിലും മത്സരിക്കും എൻസിപി മൂന്ന് സീറ്റുകളിലേയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എലത്തൂരിൽ മന്ത്രി എ

ശശീന്ദ്രനാണ് മത്സരിക്കുക കോൺഗ്രസ് എസിന്റെ ഏക സീറ്റായ കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനവിധി തേടും കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും എൽജെഡിയും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു യുഡിഎഫിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിച്ചേക്കും പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട് ഒരു പേര് മാത്രം നിർദേശിക്കാനാണ് ഹൈക്കമാന്റ് സ്ക്രീനിങ്ങ് കമ്മിറ്റിക്ക് നൽകിയ നിർദേശം മുസ്ലീം ലീഗ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും എൻഡിഎയിൽ ബിജെപി സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലായി പട്ടിക നാളെ പ്രഖ്യാപിക്കാനിടയുണ്ട് രുര കേരളമുൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ദേശീയ പാർട്ടികൾക്കും അംഗീകൃത സംസ്ഥാന പാർട്ടികൾക്കും ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണ സംപ്രേഷണ സമയം ഇരട്ടിയാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു കോവിഡ് മഹാമാരിയും സമ്പർക്കേതര പ്രചാരണത്തിന്റെ വർദ്ധിച്ച ആവശ്യകതയും കണക്കിലെടുത്ത് പ്രസാർഭാരതി കോർപ്പറേഷനുമായി ചർച്ച ചെയ്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനം എടുത്തത് ദേശീയ പാർട്ടികൾക്കും അംഗീകൃത സംസ്ഥാന പാർട്ടികൾക്കും മാത്രമേ പ്രക്ഷേപണ സമയം അനുവദിക്കൂ എന്ന് കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കി

ഇതിന് ശേഷം ഇന്നലെ വരെ പേരു ചേർത്തവരെ ഉൾപ്പെടുത്തി സപ്പിമെന്ററി വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കും

രും ഹരിതചട്ടം പാലിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഹരിതചട്ട പാലനം സംശയങ്ങളും മറുപടികളും എന്ന കൈപുസ്തകം മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് പ്രകാശനം ഹരിതകേരളം മിഷന്റേയും ശുചിത്വമിഷന്റേയും നേതൃത്വത്തിലാണ് കൈപുസ്തകം പ്രസിദ്ധീകരിച്ചത് രാജ്യത്തിന് മാതൃകയായി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സമ്പൂർണ ഹരിത തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നതിന് കൈപ്പുസ്തകം വഴികാട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു രുമ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്നവർ അവ വെള്ളിയാഴ്ചക്കകം സറണ്ടർ ചെയ്യണമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു അംഗീകൃത ലൈസൻസുള്ള ആയുധം കൈവശം വെക്കാൻ അനുവാദത്തിന് ജില്ലാ കലക്ടർ ജില്ലാ പൊലീസ് മേധാവി എന്നിവരുൾപ്പെട്ട സ്ക്രീനിങ് കമ്മിറ്റി മുമ്പാകെ മതിയായ രേഖകൾ സഹിതം വ്യക്തിഗത അപേക്ഷ സമർപ്പിക്കണം രുമ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ നിയമസഭാ വിലയിരുത്തുന്നതിനായി കൊല്ലത്ത് എത്തിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അരവിന്ദ് ആനന്ദ് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസറുമായി കൂടിക്കാഴ്ച്ച നടത്തി തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി

മാധ്യമ പ്രവർത്തകർക്കായി കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് നിയമം സംബന്ധിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രുര ജനാധിപത്യ ഗവൺമെന്റാണെന്ന കാര്യം സംസ്ഥാന ഗവൺമെന്റ് പലപ്പോഴും മറക്കുകയാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി

പാർട്ടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി

സജീവൻ നയിച്ച കടലോര യാത്ര ചോമ്പാൽ ഹാർബറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ എൽ

എഫ് മണ്ഡലം കൺവൻഷനുകൾ ഇന്ന് ആരംഭിക്കും

രും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ധർമടം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങും ചെമ്പിലോട് പഞ്ചായത്തിലെ കോമത്ത് കുന്നുമ്പ്രത്തുനിന്ന് രാവിലെ ആരംഭിക്കുന്ന പ്രചാരണം വൈകിട്ട് മുഴപ്പാല വോളിബോൾ മൈതാനത്ത് സമാപിക്കും

ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ

മൂന്ന് ദിവസത്തിനുള്ളിൽ എൽ ഡി എഫ് യു

എഫ് ബി ജെ പി എന്നിവരുടെ സ്ഥാനാർഥി നിർണയം പൂർത്തിയാകാനാണ് സാധ്യത

ജില്ലയിൽ തിരുവല്ല ആറന്മുള അടൂർ റാന്നി കോന്നി എന്നിങ്ങനെ അഞ്ച് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് ഇടത് വലത് മുന്നണിക്കൊപ്പം ബി ജെ

ഇത്തരത്തിൽ നോക്കിയാൽ വരും ദിനങ്ങളിൽ മൂന്ന് മുന്നണികളുടേയും ശക്തമായ പോരാട്ടമാകും പത്തനംതിട്ടയിൽ കാണാനാകുക രും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിങ്ങ് റാവത്തിന്റെ രാജി ഗവർണർ ബേബി റാണി മൌര്യ സ്വീകരിച്ചു

പാർട്ടി കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രിയും മുൻ സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഡോ

ധൻസിങ്ങ് റാവത്ത് എന്നിവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് രംഭ സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റീവിറ്റി നിരക്ക് തുടർച്ചയായി രണ്ടാം ദിവസവും നാലിൽ താഴെയായി

രും കൊവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആരോഗ്യവകുപ്പ് മാസ്സ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും ജില്ലയിൽ വാക്സിനേഷൻ സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറവായതിനാലാണ് മാസ്സ് വാക്സിനേഷൻ സജ്ജീകരിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് രും ഐഎസ്എൽ ഫുട്ബോളിൽ എടികെ മോഹൻബഗാൻ ഫൈനലിൽ ഗോവയിൽ രണ്ടാം സെമിഫൈനലിലെ രണ്ടാംപാദ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മോഹൻബഗാൻ തോൽപ്പിച്ചത്

ശനിയാഴ്ച്ച നടക്കുന്ന ഫൈനലിൽ മുംബൈ സിറ്റി എഫ്സിയാണ് മോഹൻബഗാന്റെ എതിരാളി രുഭ ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്സി ഇന്ന് ചർച്ചിൽ ബ്രദേഴ്സിനെ നേരിടും രാത്രി ഏഴിന് കൊൽക്കത്തയിലാണ് മത്സരം കീരിട കുതിപ്പ് തുടരാൻ ഗോകുലത്തിന് ഇന്നത്തെ മത്സരം നിർണായകമാണ് രുര ദക്ഷിണാഫ്രിക്കക്കെതിരായ രണ്ടാം ഏകദിന അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ഒമ്പതു വിക്കറ്റ് ജയം

മൂന്നാം അന്താരാഷ്ട്ര ഏകദിനം വെള്ളിയാഴ്ച ലക്നോവിൽ നടക്കും

രംഭ ഐസിസി ലോക ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയും ന്യൂസിലാന്റും തമ്മിലെ ഫൈനൽ പോരാട്ടങ്ങൾക്ക് സൌത്താപ്ടൺ വേദിയാകുമെന്ന് ബി

കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഓൺലൈനായിട്ടായിരുന്നു ഹിയറിങ്ങ് നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും നിയമപരമായി രക്ഷാകർത്താവിനെ നിയമിക്കുന്നതിനും ഇവരുടെ പേരിലുള്ള വസ്തുവകകളുടെ അനുമതി ക്രയവിക്രയത്തിന് നൽകുന്നതിനുമാണ് ഹിയറിങ്ങ് നടത്തുന്നത്

ഞായറാഴ്ച്ച വൈകീട്ടാണ് മീനമാസ പൂജകൾക്കായി നട തുറക്കുന്നത്

പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്